പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അർജന്റീനിയൻ തലസ്ഥാനമായ ബ്യൂണസ് അയേഴ്സിലെത്തും

നടനും സംവിധായകനുമുള്ള രജത മയൂര പൂരസ്ക്കാരങ്ങൾ മലയാളത്തിന്

കിരീടം

പോളിങ് പൊതുവെ സമാധാനപരമായിരുന്നുവെന്ന് തെരഞ്ഞെടുപ്പ് ഡെപ്യൂട്ടി കമ്മീഷണർ സൂദീപ് ജെയിൻ ന്യൂഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു

കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾക്കിടെ രാവിലെ എട്ടിന് ആരംഭിക്കുന്ന വോട്ടെടുപ്പ് ഉച്ചയ്ക്ക് രണ്ട് മണി വരെ തുടരും തുടർന്ന് വോട്ടെണ്ണൽ നടക്കും

ന്യൂഡൽഹിയിൽ ഇന്നലെ കേന്ദ്ര ഭവന ്നഗരകാര്യ സെക്രട്ടറി ദുർഗ്ഗശങ്കർ മിശ്ര അറിയിച്ചതാണിത് വായ്പയുമായി ബന്ധപ്പെട്ട സബ്സിഡി ഉളള പദ്ധതിയിൽ ഗുജറാത്തിനു തൊട്ടു പിന്നാലെ മഹാരാഷ്ട്രയും മധ്യപ്രദേശുമാണ് ഗുണഭോക്താക്കളുടെ എണ്ണത്തിൽ മുന്നിൽ നില്ക്കുന്നത്

കേന്ദ്ര ആഭ്യന്തര മന്ത്രി രാജ്നാഥ് സിങ്ങ് ഇന്നലെ പുതിയ സംവിധാനം ഉദ്ഘാടനം ചെയ്തു അത്യാഹിത സേവനങ്ങൾക്ക് ഉപയോഗിക്കേണ്ട നൂറ് നൂറ്റിയൊന്ന് നൂറ്റി രണ്ട് എന്നിവ സംയോജിപ്പിച്ച് ഇനിമുതൽ ഒറ്റ നമ്പറിൽ ലഭ്യമാക്കും

ഉച്ചകോടിയിൽ മൂന്ന് സമ്മേളനങ്ങളാവും ഉണ്ടാകുകയെന്ന് വിദേശകാര്യ സെക്രട്ടറി വിജയ് ഗോഖലെ ന്യൂഡൽഹിയിൽ മാധ്യമങ്ങ്ളോട് പറഞ്ഞു എണ്ണ വിലയിലെ അസ്ഥിരത തീവ്രവാദം എന്നീ് വിഷയങ്ങൾക്ക് പുറമെ ഇന്ത്യയിലെ ഡിജിറ്റൽ വിപ്തവം ആയുഷ്മാൻ ഭാരത് പദ്ധതി സോയിൽ ഹെൽത്ത് കാർഡ് മറ്റ് കേന്ദ്ര ഗവൺമെന്റ് പദ്ധതികൾ എന്നിവയെക്കുറിച്ചും പ്രധാനമന്ത്രി ഉച്ചകോടിയിൽ സംസാരിക്കുമെന്ന് ശ്രീ

എസ് ആർ ഒ പൂർണ്ണ സജ്ജം

എസ് എൽ

വിക്ഷേപണ പേടകം ഏറ്റവും ലഘുവായ രീതിയിൽ കോർ എലോൺ കോൺഫിഗറേഷനിലായിരിക്കും സഞ്ചരിക്കുക എന്നാൽ ഐ എസ്

ഒ യെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ദൈർഘ്യമേറിയ പറക്കൽ ദൌത്യമാണിത്

അഞ്ചു വർഷമാണ് ഹൈസിസിന്റെ ആയുസ്സ്

മികച്ച നടനും സംവിക്ടായക്നുമുളള രജത മയൂര പുരസ്കാരങ്ങളാണ് മലയാള് സിനിമ സ്വന്തമാക്കിയത്

യൌ എന്ന ചിത്രത്തിന്റെ സംവിധാനത്തിലൂടെ ലിജോ ജോസ് പെല്ലിശ്ശേരി മികച്ച സംവിധായകനുളള പുരസ്കാരം നേടി

ആദ്യമായാണ് ഇന്ത്യ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ മലയാളിക്ക് മികച്ച നടനുളള പുരസ്ക്കാരം ലഭിക്കുന്നത് വെൻ ദ ട്രീസ് ഫോൾ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് അനസ്താസിയ പുസ്ടോവിച്ചിന് മികച്ച നടിക്കുളള രജതമയൂരം ലഭിച്ചു സെർജി ലോസ് നിറ്റ്സ സംവിധാനം ചെയ്ത യുക്രൈനിയൻ റഷ്യൻ ചിത്രം ഡോൺ ബാസ് ആണ് മികച്ച ചിത്രം

ചെഴിയാൻ ഒരുക്കിയ തമിഴ് ചിത്രം ടു ലൈറ്റ് പ്രത്യേക ജൂറി പരാമർശം യുണെസ്കോ ഊന്നൽ നൽകുന്ന ആശയങ്ങൾക്ക് നേടി പ്രാമുഖ്യം നൽകുന്ന ചിത്രങ്ങളക്കുളള ഐ സി എഫ്

ചടങ്ങിൽ പ്രമുഖ തിരക്കഥാകൃത്ത് സലിംഖാനെ സമഗ്ര സംഭാവനയ്ക്കുളള പുരസ്കാരം നൽകി ആദരിച്ചു

ജർമ്മൻ ചിത്രം സീൽഡ് ലിപ്പസ് ആയിരുന്നു സമാപന ചിത്രം

ഗജ ചുഴലിക്കാറ്റ് ദുര്ന്തം വിതച്ച തമിഴ്നാടിനെ സഹായിക്കാൻ പത്ത് കോട്ടി രൂപ്പ് നൽകാനും ഇന്നലെ ചേർന്ന മന്ത്രിസഭ തീരുമാനമെടുത്തു

ട്രൈം ബ്രേക്കറിൽ അമേരിക്കയുടെ ഫാബിയാനോ കരുവാനെയെ ആണ് കാൾസൻ പരാജയപ്പെടുത്തിയത് തുടർച്ചയായ നാലാം തവണയാണ് മാഗ്നസ് കാൾസൻ ലോക ചാമ്പ്യനാകുന്നത്

ചുഴലിക്കാറ്റിൽ തകർന്ന കുടിലുകൾക്ക് പകരമാണ് പുതിയ വീടുകൾ നിർമ്മിച്ചു നൽകുകയെന്ന് തിരുവാരൂരിൽ പിന്നീട് വാർത്താസമ്മേളനത്തിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കി

റിട്ടേണുകൾ ഫയൽ ചെയ്യാനുളള തീയതി ഗവൺമെന്റ് നീട്ടി നൽകി ഇന്നലെ ധനമന്ത്രാലയമിറക്കിയ പ്രസ്താവന്യിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്